വാർത്തകളുടെ പശ്ചാത്തലത്തിൽ ഇന്റ്യിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെടില്ലെന്ന് ഗ്വൺമെന്റ്

ബ്യൂണൂസ് ഏരീസിൽ നടക്കുന്ന യൂത്ത് ഒളിംപിക് ഗെയിംസിൽ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം മനുഭാക്കറിന് രണ്ട് മെഡൽ നേട്ടം

ഇവിടേയ്ക്കുള്ള മന്ത്രിയുടെ പ്രഥമ സന്ദർശനമാണിത് കേന്ദ്രത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി മന്ത്രി ചർച്ച നടത്തി അടുത്തവർഷം സെപ്തംബർ മാസം മുതൽ ഇന്ത്യയ്ക്ക് നൽകുന്ന റഫാൽ യുദ്ധ വിമാനങ്ങളുടെ നിർമ്മാതാക്കളാണ് ഡസാൾട്ട് ഏവിയേഷൻ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ മേഖലയിലെ തന്ത്രപ്രധാനമായ സഹകരണത്തെക്കുറിച്ചും മന്ത്രി നേരത്തേ ഫ്രഞ്ച് പ്രതിരോധമന്ത്രി ഫ്ളോറൻസ് പിർലിയുമായി ചർച്ച നടത്തി ഈ വർഷം മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽമാക്രോണും തമ്മിൽ ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചാ വേളയിലാണ് ഇരു രാജ്യങ്ങളിലേയും പ്രതിരോധമന്ത്രി തല ചർച്ചയ്ക്ക് ധാരണയായത് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫ്രാൻസിലെ പ്രതിരോധ ഉൽപ്പാദനം ഇന്ത്യയിൽ വ്യാപിപ്പിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ ശ്രീമതി നിർമ്മലാ സീതാരാമൻ ആവശ്യപ്പെട്ടു

പാരീസിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് റിസർച്ചിന്റെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി ഭീകര സംഘടനകൾക്ക് പണവും അയുധങ്ങളും നൽകി അവരെ സഹായിക്കുകയും ഇത്തരം സംഘടനകളിലേയ്ക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിനും എതിരെ രാഷ്ട്രങ്ങൾക്കിടയിൽ യോജിച്ച പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു പ്രതിരോധമേഖലയിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ തന്ത്രപരമായ ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ ത്രിദിന സന്ദർശന്ത്തിന് ഫ്രാൻസിലെത്തിയത്

ദേശീയ സൈബർ സുരക്ഷ കോ ഓർഡിനേറ്റർ ഗുൽഷൻ റായ് ഇന്നലെ മാധ്യമപ്രവർത്തകരെ അറിയിച്ചതാണിക്കാര്യം വാർത്തകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ഇൻ്റർനെറ്റ് സേവനങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി അരുൺകുമാർ

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ആവാസ് യോജന സച്ഛ് ഭാരത് സൌഭാഗ്യ യോജന പദ്ധതികൾ ജനങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി ഉള്ളതാണ് ദുർബല വിഭാഗങ്ങളുടെ ശബ്ദമായി മാറിയതിലൂടെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കഴിഞ്ഞു കഴിഞ്ഞ നാല് വർഷമായി സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന്റെ അവകാശ സംരക്ഷണത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുവാൻ കമ്മീഷന് കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ സുസ്ഥാപിതമായ ചട്ടക്കൂട് രൂപീകരിക്കുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷൻ സുപ്രധാന പങ്ക് വഹിച്ചെന്ന് ചടങ്ങിൽ സംസാരിച്ച ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു

എച്ച്

ചെയർമാൻ എച്ച്

കമ്മീഷന്റെ രജത ജൂബിലി സ്മാരകമായുള്ള പോസ്റ്റേജ് സ്റ്റാമ്പും കവറും പ്രധാനമന്ത്രി ചടങ്ങിൽ പുറത്തിറക്കി കമ്മീഷന്റെ പുതിയ പരിഷ്ക്കരിച്ച വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു

അടുത്ത വർഷം ജനുവരി ഒന്ന് മുതൽ മൂന്ന് വർഷത്തേക്കാണ് ഇന്ത്യ്യ്ക്ക് അംഗത്വം ലഭിക്കുന്നത്

സാംബ ജില്ലയിലെ ബിജപൂർ രാംഘർ ബാരി ബ്രാഹ്മണ മുനിസിപ്പൽ കമ്മിറ്റികളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്

രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ വിശ്വസ്ത സേവകരാണ് പോലീസ് സേനയിലെ അംഗങ്ങളെന്ന് ട്ട രാഷ്ട്രപതി പറഞ്ഞു ഒരാൾ ഒരു ഐ

എസ് ഉദ്യോഗസ്ഥൻ ആകുന്നതുവഴി ് രാജ്യത്തിലെ ജനങ്ങളുടെ സേവകനാകാനുള്ള അവകാശവും അധികാരവും ലഭ്യമാവുകയാണ് സാധാരണ ജനങ്ങളുടെ സേവരാകുന്നതിനോടൊപ്പം പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുകയുമാണ് പോലീസ് സേനയുടെ പ്രഥമ കർത്തവൃം എന്നും രാഷ്ട്രപതി പറഞ്ഞു ഗവൺമെന്റുകൾ മാറി മാറി വരുമെങ്കിലും പോലീസ് സേന ഭരണഘടനയെയും അതിന്റെ തുടർച്ചയെയും പ്രതിനിധാനം ചെയ്യുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു

ഈസ്റ്റ് മിഡ്നാപൂർ വെസ്റ്റ് മിഡ്നാപൂർ ഛാർഗ്രാം ഈസ്റ്റ് ബുർദാൻ ഹൌറ ഹൂഗ്ലി ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത ഉണ്ട് ഒഡീഷ വെസ്റ്റ് ബംഗാൾ തീരത്ത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു

തൊഴിൽ സ്ഥലങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് ഒരു ചട്ടക്കൂട് രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് സമിതി രൂപീകരിക്കുന്നത് വനിതകൾക്ക് നേരെ തൊഴിൽ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ ഒരുവിധത്തിലും ക്ഷമിക്കില്ലെന്ന് വനിതാ ശിശു ശികസന വകുപ്പ് മന്ത്രി മനേകാ ഗാന്ധി പറഞ്ഞു

പിളനിസാമിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളുടെ അന്വേഷണം മദ്രാസ് ഹൈക്കോടതി സിബിഐക്ക് കൈമാറി കേസിൽ അഭിപ്പായ പ്രകടനം നടത്തുന്നില്ലെന്നും സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷ്ണം ഉറപ്പുവരുത്തുന്നതിനായാണ് കേസ് സിബിഐക്ക് നല്കാൻ ഉത്തരവിട്ടതെന്നും കോടതി പറഞ്ഞു ഹൈവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ അനുവദിക്കുന്നതിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് കാട്ടി പ്രതിപക്ഷമായ ഡിഎംകെയാണ് ഹർജി ഫയൽ ചെയ്തത്

പ്രളയത്തെ തുടർന്നാണ് ഡാമുകളുടെ പ്രവർത്തനം പഠിക്കാൻ അന്താരാഷ്ട്ര ഡാം സുരക്ഷാ വിദഗ്ധൻ ഡോ ബാലു അയ്യർ കെ

മുല്ലപ്പെരിയാർ ഒഴികെയുള്ള ഡാമുകളുടെയും ബാരേജുകളുടെയും പ്രവർത്തനങ്ങളെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ കേരളത്തിലെ ഡാമുകളും ബാരേജുകളും സുരക്ഷിതമാണെന്ന് കമ്മിറ്റി വിലയിരുത്തി

ഷാങ്കായി സഹകരണ സമിതിയിൽ അംഗങ്ങളായ രാഷ്ട്രനേതാക്കളുടെ സമ്മേളനത്തെ തജിക്കിസ്ഥാനിലെ ദുഷാൻബായിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി

രാഷ്ട്രങ്ങൾ തങ്ങളുടെ ദേശീയ ഉത്തരവാദിത്വം നിറവേറ്റുന്നതോടൊപ്പം പരസ്പര സ്ഹവർത്തിത്തം പുലർത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു

തജിക്കിസ്ഥാനിന്റെ ബെഹസാൻ ഫെയ്സുള്ളായേവ് സഖ്യത്തോടൊപ്പം മനുഭാക്കർ പത്ത് മീറ്റർ മിക്സഡ് അന്താരാഷ്ട്ര മത്സരത്തിലാണ് ്വെള്ളി നേടിയത്

ഇന്ത്യയ്ക്ക് ഷൂട്ടിംഗ് ഇനത്തിൽ രണ്ട് സ്വർണവും മൂന്ന് വെള്ളിയും ലഭിച്ചു

വനിതകളൂടെ പ്യക്തിഗത റാപ്പിഡ് ചെസ്സിൽ കെ